ത ഇന്നലെ ആറു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കൊല്ലം ജില്ലയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ

ത സൌദിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരൻമാരെ ഒഴിപ്പിക്കുന്നതിന് പദ്ധതി തയാറാക്കി വരുന്നു

ജി സി മാർഗ്ഗ നിർദേശങ്ങൾ പുറത്തിറക്കി

ലോക്ക്ഡൌൺ കാലത്ത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നുണ്ടെന്നും ജനം സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവൂവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു തദ്ദേശസ്ഥാപനങ്ങൾ പ്രാദേശിക തലത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ജാഗ്രത പുലർത്തണം പലതരം പനി ആശങ്ക സൃഷ്ടിക്കുന്നു ഈ ഘട്ടത്തിൽ ഇവയുടെ വ്യാപനം ഉണ്ടായാൽ വലിയ പ്രശ്നമാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഈ നേട്ടം തുടരുന്നതിന് മെയ് മൂന്ന് വരെ ലോക്ക്ഡൌൺ മാർഗ്ഗ നിർദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയ വക്താവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു

നിരവധി ജില്ലകളിൽ ഗണ്യമായ ഇളവുകൾ നൽകുന്ന മാർഗ്ഗ നിർദേശങ്ങൾ വരും ദിവസം പ്രഖ്യാപിക്കുമെന്നും വക്താവ് പറഞ്ഞു

കൊല്ലത്ത് ആറു പേർക്കും തിരുവനന്തപുരം കാസർകോട് ജില്ലകളിൽ രണ്ടു പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തുകളായ അമ്പൂരി വെള്ളറട കുന്നത്തുകാൽ പാറശ്ശാല മേഖലകളിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും പുറത്തിറങ്ങുന്നത് കർശനമായും നിയന്ത്രിക്കും

ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്ന് കലക്ടർ അറിയിച്ചു

എക്സൈസ് വനം വന്യജീവി വകുപ്പുകളുടെ ഓഫീസുകൾ അടിയന്തര ജോലികൾക്ക് ജീവനക്കാരെ നിയോഗിച്ച് പ്രവർത്തിക്കാം

എന്നാൽ ഹോട്ട്സ്പോട്ടുകളിലെ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ലെന്നും ജില്ലാ കലകടർ ഉത്തരവിട്ടു രുമ കോട്ടയം ഇടുക്കി ജില്ല അതിർത്തികളിൽ എറണാകുളം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണം തുടരുകയാണ്

ഒരാൾ മാത്രമാണ് ജില്ലയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്

ദേദ സംസ്ഥാനത്ത് ഇന്ന് മുതൽ പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കി

തുണികൊണ്ട് വീടുകളിൽ നിർമ്മിച്ച മാസ്ക് തോർത്ത് കർച്ചീഫ് എന്നിവയും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

ഇതിന്റെ വിശദാംശങ്ങൾ യഥാസമയം അറിയിക്കുമെന്ന് എംബസി സൌദിയിൽ പറഞ്ഞു

രുമ അതിനിടെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് യു എ ഇ യിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു

രുമ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു

വെബ്സൈറ്റിൽ ഇടതു വശത്ത് വിദേശ മലയാളികൾക്കും വലതു വശത്ത് ഇതര സംസ്ഥാനത്തുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാൻ സംവിധാനമുണ്ട് അടുത്ത അധ്യയന വർഷത്തെ പരീക്ഷകളും അധ്യയനവും സംബന്ധിച്ച് മാർഗ്ഗ നിർദ്ദേശങ്ങൾ യു ജി സി പുറത്തിറക്കി വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഒന്നിന് ക്ലാസുകൾ നിലവിലെ പുനരാരംഭിച്ചേക്കും

സ്ഥിതി സാധാരണ നിലയിലാകുന്ന സംസ്ഥാനങ്ങളിൽ ജൂലായിൽ പരീക്ഷകൾ നടത്തും അവസാന സെമസ്റ്റർ പരീക്ഷകളും ജൂലായിൽ നടത്തും വർഷാന്ത്യ സെമസ്റ്റർ ഒഴികെയുള്ള സെമസ്റ്ററുകളിൽ നിലവിലെ ഇന്റേണൽ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണയം നടത്താനും നിർദേശമുണ്ട്

ദേദ കണ്ണൂർ ജില്ലയിലെ ഹോട്ട്സ്പോട്ട് അല്ലാത്ത മേഖലകളിൽ പ്രധാന റോഡുകൾ അടിയന്തര ഘട്ടത്തിൽ തുറന്നുകൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് ജനപ്രതിനിധികളുടെ യോഗത്തിൽ ആവശ്യം ഉയർന്നു കൊവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ അടച്ചിടുന്നത് നോൺ ആശുപത്രിയിലേക്കും മറ്റും പോകുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി ജില്ലാ കലക്ടർ ടി